ഉറപ്പാക്കാൻ എല്ലാ ്നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്രം

അന്വേഷണവും സ്ഥാഗത്ത് ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഉത്തർപ്രദേശിലെ ബദൌനിലെ ദാതാഗഞ്ചിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഭരണവിഭാഗം കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കാർഷികമേഖലയിൽ രണ്ട് പുതിയ ഓർഡിനൻസുകളും മറ്റ് നിയമ പരിഷ്ക്കാരങ്ങളും നടപ്പാകുന്നതോടെ കർഷകർക്ക് രാജ്യത്ത് എവിടെയും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുമെന്നും എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയിട്ടുണ്ടെന്നും ശ്രീ

പെട്രോളിയം പ്രകൃതിവാത്കും വൈദ്യുതി കൽക്കരി ഖനികൾ ആണവോർജ്ജ് എന്നീ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു

സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ പങ്കുവഹിക്കാനു ണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു

ബി എസ് ഇ

അടിസ്ഥാന ആശയങ്ങൾ നഷ്ടമാകാതെ പഠന വിഷയങ്ങൾ പരിഷ്ക്കരിക്കാൻ തീരുമാനിച്ചതായി മാനവ വിഭവശേഷി വികസന മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ട്വിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനാണ് പുതിയ നിർദ്ദേശം

ആക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്ക് യാത്രാ സൌകര്യം ഒരുക്കിയത് ഉൾപ്പെടെ പിന്തുണ നൽകിയ ആളെയാണ് അറസ്റ്റ് ചെയ്തത് ജമ്മുവിലെ എൻ

കേസിൽ എൻ

കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ഐ

എഫ് അംഗങ്ങൾ വീരമൃത്യൂ വരിച്ചിരുന്നു

വ്യോമസേന ലഡാക്കിലെ തന്ത്ര പ്രധാന മേഖലയിൽ നിൽയുറപ്പിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു ആനുഭവസമ്പത്തിന്റെ പിൻബലമുള്ള വ്യോമസേനയ്ക്ക് പ്രതിരോധിക്കാൻ മാത്രമല്ല ഫലപ്രദമായി ആക്രമണം നടത്താനും കഴിയും ഹിമാലയത്തിന്റെ വടക്കൻ അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രത്യേക പരിശീലനവും വിമാനങ്ങളും വ്യോമസേനയ്ക്കുണ്ട് ശത്രുക്കളുടെ നീക്കം നിരീക്ഷിക്കാൻ ആധുനിക ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്

ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ബി ആർ ഒ ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഹർപാൽ സിംഗും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശ്രിംഗ്ലയും അമേരിക്കൻ രാഷ്ട്രീയ കാര്യ സെക്രട്ടറി ഡേവിഡ് ഹേലും തമ്മിലുള്ള വെർചൽ യോഗത്തിലാണ് തീരുമാനം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ നേതൃതിത്തിൽ ഇന്ത്യ ലഡാക്കിലും യഥാർത്ഥ നിയന്ത്രണരേഖയിലും ആടിസ്ഫാന സൌകര്യങ്ങൾ വികസിപ്പിച്ചതായി ദൂരദർശൻ വ്ര്ർത്ത്കൾക്കു നൽകിയ അഭിമുഖത്തിൽ ലുട്ട് വിക് പറ്റഞ്ഞു

അമേരിക്ക ജപ്പാൻ ഇസ്രായേൽ എന്നിിവയുൾപ്പെടെ നിരവധി സഖ്യകക്ഷികൾ ഇന്തൃയ്ക്കുണ്ടെന്നും എന്നാൽ ചൈനയെ പാകിസ്ഥാൻ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു

സിനിമ സീരിയൽ നിർമ്മാണത്തിനായി ചില ഇളവുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു

ലോക ബാങ്കിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യ വിഭാഗം ഡയറക്ടർ കൈസർ ഖാനും കേന്ദ്ര സാമ്പത്തിക കാര്യ അഡീഷണൽ സെക്രട്ടറി സമീർ കുമാർ ഖാരെയുമാണ് വായ്പക്കുള്ള കരാർ ഒപ്പിട്ടത്

സംസ്ഥാനത്ത് സ്ഥിതി ഗുരുതരമാണെന്നും നഗരങ്ങൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനം തടയാൻ കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കോവിഡ് രോഗവ്യാപനം തടയുന്നതിനായി തലസ്ഥാന നഗരിയിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ മൂന്നാം ദിവസമായ ഇന്നും നേരിയ ഇളവുകളോടെ തുടരുന്നു

ഇതു സംബന്ധിച്ച് ഐ സി എം

ഭാരത് ബയോടെക്കുമായി ചേർന്നാണ് ് ഐ

അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ തന്റെ ഓഫീസിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണത്തിനുള്ള മറുപടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു